പെരുമാറ്റച്ചുട്ടം കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെനിർദ്ദേശം

മെഡിക്കൽ ഓക്സിജനും മെഡിക്കൽ ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തീരുവ്യിൽ ്അടുത്ത മൂന്ന് മാസത്തേക്ക് പൂർണ്ണ ഇളവ് നൽകാൻ ക്യേന്ദ് സർക്കാർ തീരുമാനിച്ചു വീട്ടിലും ആശുപത്രികളിലും ഓക്സിജന്റെ വിതരണത്തിനും രോഗികളുടെ പരിചരണത്തിനും ആവശൃമായ സൌകരൃങ്ങൾ വർദ്ധിപ്പിക്കേ ണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ശ്രീ മോദി ഉൌന്നിപ്പറഞ്ഞു ഓക്സിജന്റെയും വൈദൃസഹായങ്ങളുടെയും വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടപടികൾ സ്വീകരിച്ചു വരികയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കഴിഞ്ഞ വർഷം എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ ആത്മാർത്ഥമായി പിന്തുടർന്നെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജ്യത്തെ മഹാമാരിയിൽ നിന്ന് കരകയറ്റാൻ ഇത് ്സ്ഫായിച്ചതായും അദ്ദേഹം പറഞ്ഞു സ്ഥമിത്വ പദ്ധതിയുടെ ഉദ്ഘൂടന് പരിപാടിയിൽ സംസാരിച്ച മോദി കോവിഡ് പ്രതിരോധത്തിൽ ഗ്രാമീണ ഇന്ത്യയുടെ പങ്കിനെ പ്രശംസിച്ചു

കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഡൽഹിയിലെ ആരോഗ്യ മേഖലയ്ക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഡി

പി കേന്ദ്ര സർക്കാർ എന്നിവ സംയുക്തമായി ഛത്തർപൂരിൽ സ്ഥാപിച്ച സർദാർ പട്ടേൽ കോവിഡ്ടു ആശുപത്രി ഇന്ന് മുതൽ പ്രവർത്തനക്ഷമമാകും

കർണ്ണാടക ഡൽഹി ഛത്തീസ്ഗഢ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളുടെ വിഹിതവും ഉയർത്തിയിട്ടുണ്ട്

കോവിഡിനെതിരായ മന്ത്രാലയം പോരാട്ടത്തിൽ അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ആരോഗ്യ മേഖലയെ സഹായിക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും റെയിൽവേ കൈക്കൊള്ളുന്നുണ്ട്

സ്പകാര്യ ആശുപത്രി മാനേജുമെന്റുകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിത് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കരുതെന്നും പ്രതിനിധികളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്

വിവാഹം മരണം തുടങ്ങിയ ചടങ്ങുകൾക്ക് പോകുന്നവർ മതിയായ രേഖകളും തിരിച്ചറിയൽ കാർഡും കൈയിൽ കരുതേണ്ടതാണ്

കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ മൂവ്വായിരത്തിലേറെ കോവിഡ് കേസുകളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

പെരുമാറ്റച്ചട്ടം കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി

മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അഭ്യാസത്തിൽ ഇന്ത്യയുടെ ഐ എൻ എസ് കൊൽക്കത്ത ഐ

എസ് തർക്കഷ് ഐ

ചാൾസ് ഡിഗോൾ വിമാന വാഹിനി കപ്പലും റഫേൽ വിമാനങ്ങളുമായാണ് ഫ്രഞ്ച് നാവികസേന അഭ്യാസത്തിനിറങ്ങുന്നത്

രാജ്യരക്ഷാമന്ത്രാലയം മൂന്ന് സേനാ വിഭാഗങ്ങൾ എന്നിവ സർക്കാരുകൾക്ക് ആവശ്യമായ പിന്തുണ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

അപകടത്തിൽ പെട്ടവരുടെ പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തുക്കു കാണാതായവർക്കായി രക്ഷാപ്രവർത്തനം തടസ്സമില്ലാതെ പ്ര കൃതുട്രുന്നതായി കരസേന അറിയിച്ചു

ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കാണ് വില ക്ക് അതേസമയം യുഎഇ യിൽ നിന്ന് ഇന്തൃയിലേക്കുള്ള യാത്രാവിമാനങ്ങൾക്ക് വിലക്കില്ല്

ആദൃ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് മൈസ്യേഴ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി